ദേശീയ കളിപ്പാട്ട മേളയിലൂടെ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ ആഗോള വിപണിയിൽ ഇടംപിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യാന്തര കളിപ്പാട്ട മേളയുടെ ആദ്യ പതിപ്പിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

പ്രവർത്തനം കൂടുതൽ പ്പ്യോജനപ്പെട്ടതായി ഉപരാഷ്ട്രപതി എം

എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ്

ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടുന്നു

ഇത് നീതി നടപ്പാവുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും കേസ് നടത്തിപ്പിന്റെ ചെലവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു

സൈബർ കുറ്റകൃത്യങ്ങൾ ബൌദ്ധിക സ്വത്തവകാശ ലംഘനം അന്താരാഷ്ട്ര ് നിയമങ്ങൾ തുടങ്ങിയ പുതിയ മേഖലകളിലെ തർക്കങ്ങൾകൂടി കൈകാര്യം ചെയ്യത്തക്കവിധം നീതിന്യായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറണമെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു

ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് ആഗോള വിപണിയിൽ ഇടം കണ്ടെത്താൻ മേള സഹായകരമാക്കുങ്മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി നന്ദകുമാർ ്ട്രിവോയിസ് രാജ്യത്തെ കളിപ്പാട്ട നീർമ്മാണ മേഖല സ്വയംപര്യാപ്തതയിലൂടെ ആഗോളതലത്തിൽ ഖ്യാതി നേടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിപണി മുൻനിർത്തി മാത്രമല്ല പരമ്പരാഗത കായികമത്സരങ്ങളെയും വിനോദങ്ങളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും കളിപ്പാട്ട മേളയിലൂടെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം വൃക്തമാക്കി

മിക്ക ഇന്ത്യൻ കളിപ്പാട്ടങ്ങളും പ്രകൃതിദത്തവും പരിസ്ഥിതി സൌഹൃദവുമായ വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് പരിസ്ഥിതിക്കും ഒരേപോലെ ഇണങ്ങുന്ന കളിപ്പാട്ടങ്ങൾ മനസിനും വിപണിയിലെത്തിക്കണമെന്ന് ശ്രീ മോദി രാജ്യത്തെ കളിപ്പാട്ട നിർമാതാക്കളോട് അഭ്യർത്ഥിച്ചു ആഗോള വിപണി ഉപഭോക്താക്കളുടെ ആവശ്യകത കുട്ടികളുടെ താല്പരൃങ്ങൾ എന്നിവ മുൻനിർത്തിയായിരിക്കണം കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കേണ്ടത് കുട്ടികളുടെ ചിന്താശേഷിയേയും ഭാവനയേയും വികസിപ്പിക്കുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് നിർമ്മിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ വിവിധ കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റ് അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി കൈകൊണ്ട് ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ പ്രധാന സ്ഥാനമുണ്ടെന്നും അഭിപ്രായപ്പെട്ടു

കളിപ്പാട്ട വ്യവസായത്തിന്റെ സമഗ്രവികസനത്തിനു വഴിയൊരുക്കുകയാണ് മേളയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭരണം നിലനിർത്താനുള്ള നീക്കങ്ങളുമായി ഇടതുമുന്നണിയും അട്ടിമറി വിജയം നേടാനായി കോൺഗ്രസും ശ്രമിക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ നേടുകയാണ് ബിജെപിയുടെ ലക്ഷ്യം

പറ്റ്നാ ഹൈക്കോടതിയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങൾ സാധാരണ ജനങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണ്ണായക പങ്കുവഹിച്ചിട്ടുണ്ട് സർക്കാർ അത് മാനിക്കുന്നുവെങ്കിലും വെറുപ്പും വിദ്വേഷവും പരത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടിവരും സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയണമെന്നും ശ്രീ

ടി പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് പുതിയ വൃവസ്ഥകൾ ഒന്നും അടുത്തിടെ പുറത്തിറക്കിയ ഐ

ചട്ടങ്ങളിൽ ൂ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ

ഒരു കോടിയിലേറെ പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി

പരിശോധനകളുടെ എണ്ണം കൂട്ടുകയും വ്യാപനം തടയാനുള്ള മാർഗ്ഗങ്ങൾ ശക്തമായി തുടരുകയും വേണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി നടത്തിയ അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു

രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ ഉള്ള കോവിഡ് ഔര്യോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ജനങ്ങൾ ജാഗ്രത കൈവെടിയരുതെന്ന് ഓർമ്മിപ്പിച്ചു

വംശീയമോ രാഷ്ട്രീയപരമോ ആയ വേർതിരിവുകൾ ഇല്ലാതെ സാധ്യമായ എല്ലാവരിലും കോവിഡ് വാക്സിൻ എത്തിക്കാനുള്ള ആഹാനം പ്രമേയത്തിൽ ഉണ്ട്

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും

എൽ ഫുട്ബോളിൽ ഒഡിഷ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം

എസ് എൽ റാങ്കിംഗ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്തും ഒമ്പത് പോയിന്റുമാത്രമുള്ള ഒഡീഷ അവസാന സ്ഥാനത്തുമാണ്